അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമപരിഷ്ക്കരണത്തിനായി ക്യേന്ദ്രം മന്ത്രിതല സമിതി രൂപീകരിച്ചു

നഷ്ടപരിഹാര തുക വർധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനം ശബരിമലയിൽ യുവിതികൾക്ക് സംരക്ഷണം ന് നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഗവൺമെന്റിനോട് വിശദീകരണം തേടി

വിഷയത്തിൽ മുഖ്യമന്ത്രി വർഗ്ഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിയ്ക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്

വർഷം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി കെ

ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗായിരിക്കും സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ മനേക ഗാന്ധി നിതിൻ ഗഡ്കരി എന്നിവരാണ് മറ്റംഗങ്ങൾ നിലവിലുള്ള നിയമ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും പരിഷ്ക്കരിക്കുന്നത് സംബന്ധിച്ചായിരിക്കും സമിതി പഠിക്കുക

ആരോപണങ്ങൾ ഉയർന്ന സാഹചരൃത്തിൽ സിബിഐ യിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് മാറിനിൽക്കാൻ ആവശ്യപ്പെട്ടത് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസൃത കാത്തുസൂക്ഷിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു

പൂർണ്ണമായി തകർന്ന വീടുകൾ ഒഴികെ മറ്റുളളവയെ നാലു വിഭാഗങ്ങളായി തിരിച്ചാണ് നൃഷ്ടപരിഹാരം നൽകുന്നത്

നാശനഷ്ടത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിൽ നിന്ന് കൂടുതൽ തുക അനുവദിക്കാൻ തീരുമാനിച്ചത്

സ്വന്തമായി വീട് നിർമിക്കുന്നവർക്കാണ് നാലു ലക്ഷം രൂപ നൽകുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇൻഫർമേഷൻ ആൻറ് പബ്ലിക് റിലേഷൻസ് വകുപ്പും സാംസ്കാരിക വകുപ്പും പുരാവസ്തുപുരാരേഖാ വകുപ്പുകളും ചേർന്നാണ് പരിപാടികൾ ്നടത്തുക ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല നൽകാനും തീരുമാനിച്ചു

ഇതുമൂലം ജനങ്ങൾക്കുള്ള പ്രയാസം ഒഴിവാക്കുന്നതിനാണ് ഫീസ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് ദുരിതാശ്വാസനിധി ഒരു കൂടുംബത്തിലെ ഒന്നിലധികം പേർക്ക് മാരകമായ അസുഖങ്ങൾക്ക് ചികിത്സ വേണ്ടിവന്നാൽ ഓരോ അംഗത്തിനും പരമാവധി മൂന്നു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദൂരിതാശ്വാസനിധിയിൽ നിന്ന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

അഭിഭാഷക ക്ഷേമനിധി അഭിഭാഷക ക്ഷേമനിധിയുടെ പ്രവർത്തനം കൂടുതൽ കേരള സുതാര്യമാക്കുന്നതിനും ക്ഷേമനിധി സ്റ്റാമ്പുകളുടെ അച്ചടിയും വിൽപ്പനയും ഗവൺമെന്റ് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും കേരള അഭിഭാഷക ക്ഷേമനിധി നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് സംബന്ധിച്ച കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു

ഗവൺമെന്റും ദേവസ്വം ബോർഡും കോൺഗ്രസ്കൂം ബി ജെ പിയുമാണ് ഹർജിയിലെ എതിർ കക്ഷികൾ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ദേവസ്വം ബോർഡ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ തുടർന്നുണ്ടായ സാഹചര്യം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകില്ലെന്ന് ദേവസ്വം ബോർഡ് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്ന് ദേവസ്വം ബോർഡ് അംഗം കെ

ശങ്കരദാസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

സൂപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ദേവസ്ഥ ബോർഡിനുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു

വിശ്വാസികളുടെ ആശങ്കയും ഭയപ്പാടും പരിഹരിക്കുന്നതിന് പകരം ഇപ്പോഴത്തെ സംഘർഷം ആളിക്കത്തിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു

പന്തളം കൊട്ടാര നിർവ്വാഹക സംഘം ഭാരവാഹികളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എ കോളേജുകളിലെ യ്ഡഡ് മാനേജർമാരുമായും പ്രിൻസിപ്പൽമാരുമായും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു എയ്ഡഡ് കോളേജുകളിൽ ഇനി പുതിയ സ്വാശ്രയ കോഴ്സുകൾ അനു വദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഓപ്പൺ യൂണിവേഴ്സിറ്റി യാഥാർഥ്യമാകുന്നതോടെ വിദുര വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നിവ ഇതിനു കീഴിലാകും ഇതോടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നില വിലെ തിരക്ക് കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു

സമഗ്ര സംഭാവനക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം ഉൾപ്പടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട്

പഞ്ചായത്ത് പ്രസിഡന്റ് പി

വനിതാ ശാക്തീകരണം സച്ച് ഭാരത് അഭിയാൻ ബാങ്ക് വായ്പാ ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവ സംബന്ധിച്ച് വിദഗ്ധൻ ക്ലാസ്സെടുത്തു

സ്പീക്കർ നവോത്ഥാനമെന്നാൽ പഴയകാല ഓർമകൾ അയവിറക്കൽ മാത്രമല്ലെന്നും ഇന്നു നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നു തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കൽ കൂടിയാണെന്നും സ്പീക്കർ പി

ജനാഭിപ്രായത്തിന്റെ രൂപീകരണമാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് പ്രളയകാലത്ത് കേരളത്തിലെ മാധൃമങ്ങൾ സ്വീകരിച്ച രീതി ലോക മാധ്യമ രംഗത്തിനുതന്നെ മാതൃകയായിരുന്നു